വാഗ്ദാനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ

പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് ക്ക് ്ട്രക് ഗവൺമെന്റ് അംഗീകാരം നൽകി

ജാർഖണ്ഡ് നിയമസഭയില്ലേക്കുള്ള അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ന് പ്രചരണം ഉച്ചസ്ഥായിയിലെത്തി

കർഫ്യൂകളും പിൻവലിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

ടി നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് നൽകുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യ എക്കണോമിക് കോൺക്ലെവിനെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്ര ധനമന്തി

ടി റിട്ടേണിനായി ഫയൽ ചെയ്ത സ്തിപ്പുകൾ യഥാസമയം ലഭ്യമാകാത്തതാണ് നഷ്ടപരിഹാര തുക പാസാക്കാൻ കാലതാമസം എടുക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീത്രാരാമൻ വ്യക്തമാക്കി പ്രകൃതി ദുരന്തങ്ങളും ഉപഭോഗത്തിലുണ്ടായ കൂറ്റ്പുമാണ് യഥാസമയം ജി

ടി ഫയൽ ചെയ്യുന്നതിന് കാലതാമസ്സും ദ്നേരിടുന്നതെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ടി നിര്ക്കുകൾ കുറയ്ക്കുമെന്നുള്ള വാർത്തകൾ കേന്ദ്ര ധനമന്ത്രി തള്ളി

നാളെ ജിഎസ്

നികുതി വരുമാന വർദ്ധനയ്ക്കായുള്ള നടപടികൾ കൌൺസിൽ യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ

പുതിയ പരിഷ്ക്കരണങ്ങൾ മേഖലയിലെ ഉത്പാദനശേഷി കൂട്ടുമെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഒരു കോടി രൂപ വരെയുള്ള വായ്പകൾക്കാണ് പലിശ ഇളവ് നൽകുക ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വായ്പ നൽകാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു

ഭാവി വരുമാനം സംബന്ധിച്ച കാര്യങ്ങളാണ് ധനകാര്യ കമ്മീഷന്റെ പ്രധാന ആശങ്കാ വിഷയമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ എൻ

നികുതി സംബന്ധിച്ച് കൃത്യതയും കണക്കും ഉണ്ടാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

ടിക് എന്നീവയാണ് കൌൺസിൽ ചർച്ച ചെയ്തത്

ക്ട്രെന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ അവാർഡിനാണ് ജമ്മു കാശ്മീർ കേന്ദ്ര ഭരണ പ്രദേശം അർഹമായത് വ്യാഴാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും

ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യുവജനങ്ങളിലേയ്ക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു

കശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഭീകര വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്

നെഹ്റു ഗാന്ധി കുടുംബത്തിന് എതിരായ പരാമർശങ്ങളുടെ പേരിലായിരുന്നു പായലിനെ അറസ്റ്റ് ചെയ്തത് ജാമ്യം തേടി പായൽ നൽകിയ ഹർജി കോടതി തള്ളിയതിനെ തുടർന്നാണ് കസ്റ്റഡിയിൽ വിട്ടത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ബന്ധം ഇന്നുമുതൽ പുനസ്ഥാപിക്കുമെന്ന് സംസ്ഥാന ധനമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ കഴിഞ്ഞ ദിവസം രാത്രി ട്വിറ്ററിലൂടെ അറിയിച്ചു അസമിൽ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾക്ക് ശേഷം ജനജീവിതം സാധാരണനിലയിലേയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗുവാഹത്തിയിൽ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ കുറിച്ച് ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി

അടുത്ത ആറുമാസത്തീറ്റുള്ളിൽ നിയമന നടപടികൾ പൂർത്തിയാക്കാൻ എല്ലാ വകുപ്പുകളില്ലെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ നിർദ്ദേശിച്ചു

എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ബഹുജൻ സമാജ്വാദി പാർട്ടിയിലെ കാസിം അലിഖാൻ നൽകിയ പരാതിയിലാണ് നടപടി

മേക്കൌട്ട് ജലവിതരണ പദ്ധതിയിലും മഹാനദി കൃഷ്ണനദി തർക്കങ്ങളിലും കേന്ദ്രമന്ത്രി ഇടപെടണമെന്ന് യെദ്യൂരപ്പ ആവശ്യപ്പെട്ടു

ചാൻസലർ റബ്ബർ സ്റ്റാമ്പുകളല്ലെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് ചാൻസലർമാർ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചട്ടവും നിയമവും അനുസരിച്ചേ അവർ പ്രവർത്തിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു

സംഘർഷസാധൃതയുള്ള സ്ഥലങ്ങളിൽ ഇന്നല്ലൂ വൈകീട്ടോടെ പോലീസ് സംഘത്തെ വിന്യസിച്ച് പിക്കറ്റിങ് ഏർപ്പെടുത്തു ആടിയന്തര സാഹചര്യം നേരിടാൻ പോലീസ് കൺട്രോൾ റൂമുകളിൽ അഗ്നിരക്ഷാസേന സ്ട്രൈക്കിങ് സംഘത്തെ വിന്യസിച്ചു സർവകലാശാലകുൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്ന പരീക്ഷകൾക്കും ഇന്നു മാറ്റമില്ല

എസ് ആർ

വോട്ടെണ്ണൽ നാളെ രാവിലെ നടക്കും

ഫൈനലിലേയ്ക്ക് കടക്കുന്നതിന് ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിലെ വിജയം അനിവാര്യമാണ്